പ്രളയക്കെടുതി നേരിടാൻ കൈക്കൊള്ളേണ്ട നടപടികളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനവും രക്ഷാപ്ര വർത്തനവും യോഗത്തിൽ വിലയിരുത്തി സമാനരീതി യിലുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകളും ചർച്ചയാകുന്നു ഓരോ ജില്ലയ്ക്കും നേരിട്ട നഷ്ടങ്ങൾ പ്രത്യേകമായി വിലയിരുത്തുന്നുണ്ട് നഷ്ടപരിഹാരവും പുനരധിവാസവും സംബന്ധിച്ച ്രമ്മീർഗ്ഗരേഖയും ഇന്ന ത്തെ യോഗത്തിൽ ചർച്ചയാകൂർ പ്രപളയം സംസ്ഥാനത്തെ പ്രിള്യ് ബാധിത പ്രദേശങ്ങൾ സന്ദർശി ക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി നാളെ രാവിലെ തിരുവന്തപുരത്തെത്തുമെന്ന് കെ

സി സി പ്രസിഡന്റ് എം

നാളെയും മറ്റന്നാളുമായി ചെങ്ങന്നൂർ ആലപ്പുഴ ചാല ക്കുടി ആലുവ പറവൂർ വയനാട് ജില്ലയിലെ കോട്ടാ ത്തല എന്നിവിടങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുന്ന അദ്ദേഹം മ റ്റന്നാൾ ഉച്ചയ്ക്ക് കരിപ്പൂരിൽ നിന്ന് ഡൽഹിക്ക് മട ങ്ങും ആലപ്പുഴയിൽ പ്രളയദുരന്തത്തിൽപ്പെട്ടവരെ ര ക്ഷിച്ച മത്സൃത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണ ചടങ്ങിലും ശ്രീ രാഹുൽഗാന്ധി പങ്കെടു ക്കും

ശുചീകരണ യജ്ഞത്തെക്കുറിച്ച് മന്ത്രി തോമസ് ആകാശവാണിയോട്

ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ അവലോകനയോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അല്പസമയത്തിനകം ചേരും ജില്ലയിലെ റോഡുകൾ പാലങ്ങൾ വീടുകൾ കൃഷി തുടങ്ങിയവയ്ക്കു സംഭവിച്ച നാശം യോഗം വിലയിരുത്തും മന്ത്രി എം എം മണി ജോയ്സ് ജോർജ് എംപി എം

എ മാരായ പി

ജോസഫ് എസ് രാജേന്ദ്രൻ ഇ

ബിജിമോൾ റോഷി അഗസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസൃാ പൌലോസ് എന്നിവർ പങ്കെടുക്കും

രവീന്ദ്രനാഥ് ഒന്നാം പാദ വാർഷിക പരീക്ഷകൾ മാറ്റി എന്നും മന്ത്രി അറിയിച്ചു ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളു കളിലെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ മറ്റ് സംവിധാനം ഏർപ്പെടുത്തും പ്രളയത്തിൽ പാഠപുസ്തകങ്ങളും യൂണിഫോമും നഷ്ട പ്പെട്ട വിദ്യാർത്ഥികൾ വൈള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതാത് സ്കൂളുകളിൽ വിവരം രജിസ്റ്റർ ചെയ്യണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവ നൽകും

വെള്ളം കയറിയ വ്യീട്ടുകളിലും പരിസരങ്ങളിലും പാമ്പ് ശലും വൃാപകമായ സാഹചരൃത്തിൽ കൊല്പത്തുനിന്നുള്ള അഞ്ചംഗ പാമ്പുപിടുത്ത സംഘവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു

ധർമ്മലിംഗം കനകരാജ് അപ്പുക്കുട്ടൻ എന്നിവരെയാണ് അതിസാഹസികമായി ് രക്ഷപെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്

ഗുരുദേവൻ ഉപ്പൂയോഗിച്ചു റിക്ഷ എഴുന്ന ള്ളത്ത് വൈകിട്ട് ശിവഗിരിയിൽ നടക്കും

വീടുകൾ വൃത്തിയാക്കാനും പരിസരം ശുചീകരിക്കാനും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിന ഭാഗങ്ങളിൽ നിന്നും ചെങ്ങന്നൂർ ് മേഖലയിൽ എത്തിയത് പുനരധിവാസ പ്രവർത്തനങ്ങനെക്കുറിച്ച് സജി ചെറിയാൻ എം

കൊല്ലം ജില്ലയിൽനിന്നുള്ളവർക്കായി ആരംഭിച്ചവയിൽ ചവറ തെക്കുംഭാഗം ഗവൺമെന്റ് യു

ട്ടടടടടട തൃശൂർ പ്രളയം തൃശ്ശൂർ ചാലക്കുടി മേഖലയിൽ പ്രളയത്തിൽപ്പെട്ട് ചത്ത കന്നുകാലികളുടെയും കോഴി താറാവ് എന്നിവയുടെയും ജഡങ്ങൾ സംസ്കരിക്കാൻ തുടങ്ങി ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിയ ആനന്ദ മാർഗ് യൂണിവേഴ്സൽ റിലീഫ് സംഘം വെള്ളക്കെട്ടിലും ചെളിയിലും അടിഞ്ഞു കിടക്കുന്ന ജഡാവിശ്ഷടങ്ങൾ കരയിലെത്തിച്ച് ഒഴിച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്

സെമി ഫൈനലിൽ ലോക ഒന്നാംനമ്പർ താരം തായ് സു യിങ്ങിനോട് പരാജയപ്പെട്ടു

ബാഡ്മിന്റൺ വൃക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ് കൂടിയാണിത് അതേസമയം മറ്റൊരു വനിതതാരം പി

അത്ലറ്റിക്സിൽ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷകളുമായി നയന ജെയിംസും വി

ജില്ലയിലുണ്ടായ മലയിടിച്ചിലിൽ റോഡുകൾ തകർന്നതും വാർത്ത വിനിമയ സംവിധാനങ്ങൾ തകരാറിലായതും കാരണം മഴക്കെടുതികൾ പുറംലോകം അറിയാൻ വൈകിയതായി കളക്ടർ പറഞ്ഞു

കൊല്ലം ഈസ്റ്റ് പോലീസ് പ സ്റ്റേഷനിലെ എ എസ് ഐ പദ്മരാജനാണ് അറസ്റ്റിലായത്

വൃക്തമായ ദിശാബോധത്തോടെയാണ് ഗവൺമെന്റ് മത്സ്യതൊഴിലാളികളെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു